സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജം

ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തു്ടരുന്നു

മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ ഇന്ന് ന് ഉച്ചയ്ക്ക് രണ്ടുമുതൽ വൈകിട്ട് അഞ്ച് വരെ നടക്കും

കേന്ദ്രീകൃത നിക്ഷേപകൻ ഒമർ അലി ബൽഷറാഫിന് എതിരെ ഡൽഹി ഹൈക്കോടതിയുടെ ജാമ്യമില്ലാ വാറണ്ട്

ഈ ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഇന്നലെ വൈകു ന്നേരം അവസാനിച്ചിരുന്നു

പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി ഉത്തർപ്രദേശിലും ബീഹാറിലും നടന്ന റാലികളിൽ പങ്കെടു ത്തു

അതേസമയം പ്രധാ നമന്ത്രി നരേന്ദ്രമോദി തൊഴിലില്ലായ്മയും കർഷകരുടെ ദുരിതവും വിസ്മരിക്കുകയാണെന്ന് കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടു പ്പിന്റെ ആറ് ഏഴ് ഘട്ടങ്ങളിലെ പ്രചരണത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേ ശിലെ ദാദോഹി മധ്യപ്രദേശിലെ സാഗർ ഗ്വോളിയോർ എന്നിവിടങ്ങ ളിൽ പ്രധാനമന്ത്രി ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും

ജെ

അധ്യക്ഷൻ അമിത് ഷാ ഹരിയാനയിലെ യമുനാ നഗറിലും പഞ്ചാബിലെ പത്താൻ കോട്ടും പൊതു സമ്മേളനങ്ങളിൽ പങ്കെടുക്കും

അധ്യക്ഷ മായാവതി ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗർ പ്രതാപ് ഘട്ട് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കും

ഗുജറാത്തില്ലെ മുഖ്യതിരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ റിപ്പോർട്ട് പ്രകാരം വിഷ്യത്തിൽ വൃക്തമായ പരിശോധന നടത്തിയെന്നും അതിൽ ചട്ട്ലംഘനമൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്നും തിരഞ്ഞ്ടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു

ജെ

നേതാവിനെ ഭീകരർ വെടിവെച്ച് കൊന്നു

അനന്ത് നാഗ് ജില്ലയിലെ ബി ജെ

ജില്ലാ പ്രസിഡന്റായിരുന്നു അദ്ദേഹം

പ്രദേശത്തെ സേനയുടെ വിന്യാസവും പ്രവർത്തനവും സംബന്ധിച്ച് ലഫ് ജനറൽ വൈ

ജോഷി അദ്ദേഹത്തിന് വിശദീകരണം നൽകി സേനാആസ്ഥാനത്ത് സന്ദർശനം നടത്തിയ അദ്ദേഹം വിവിധ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ മികച്ച പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു

വി

ഹെലികോപ്റ്റർ അഴിമതിയു മായി ബന്ധപ്പെട്ട് ഗൾഫ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിക്ഷേപകനെ തിരെ ഡൽഹി കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു ഗൾഫ് ബിസിനസ്കാരനായ ഒമർ അലി ബൽഷറ്റഫില്ലനതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ പ്രത്യേക ജഡ്ജ് അരവിന്ദ് കുമാർ അനുവദിക്കുകയ്ക്ക്ക്ക് ിിർന്നു

നവീൻ കുമാർ മേത്തയും വാദിച്ചു

മാർട്ടിനെതിരെ കുറ്റം ചുമത്താവുന്ന തെളിവുകൾ കണ്ടെത്തിയതായി ആദായനികുതി വകുപ്പ് അധികൃതർ അറിയിച്ചു

ബംഗ്ലാദേശിലെ നിരവധി തീരദേശഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായതായി ദുരന്തനിവാരണ ചുമതലയുള്ള മന്ത്രി എനമൂർ റഹ്മാൻ അറിയിച്ചു അതേസമയം ഒഡീഷയിൽ ഫോനി ദുരിതം വിതച്ച പ്രദേശങ്ങളിൽ ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടരുന്നു

ഇന്ത്യൻ നാവിക കപ്പലുകളായ റൺവിജയ് കട്മത്ത് ഐരാവത് എന്നിവയും മൂന്ന് ഹെലികോപ്റ്ററുകളും നിലവിൽ രംഗത്തുണ്ട് വ്യേമസേന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ദ വിമാനങ്ങളെ ഭുവനേശ്വറിലേക്ക് അയച്ചിട്ടുണ്ട്

സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഒഡീഷയിലെത്തും ഇന്നലെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കുമായി സംസാരിച്ച പ്രധാനമന്ത്രി കേന്ദ്രത്തിന്റെ പൂർണ പിന്തുണ ഉറപ്പുനൽകി ഭുവനേശ്വറിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഇന്നലെ പുനഃസ്ഥാപിച്ചു കുടുങ്ങിക്കിടന്ന നിരവധി യാത്രക്കാരെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ എത്തിച്ചു പശ്ചിമ ബംഗാളിൽ ഫോനി ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കൊൽക്കത്തയിൽ നിന്നുള്ള വ്യോമഗതാഗതവും ട്രെയിൻ സർവീസുകളും സാധാരണ നിലയിലായിട്ടുണ്ട്

ഗുവഹത്തിയിൽ വെള്ളം കെട്ടികിടക്കുന്നത് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് എന്നിരുന്നാലും സംസ്ഥാനത്തെവിടെയും അനിഷ്ട സംഭവങ്ങ ളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ജില്ലാ ഭരണകൂടങ്ങൾ ഫോനി ചുഴ ലിക്കാറ്റിന്റെ സ്ഥിതി ഗതികൾ നിരീക്ഷിച്ച് വ്യത്രികയാണ്

പാലക്കാട് സെന്റ് മേരീസ് പോളിടെക്നിക്കിലെ പരീക്ഷാകേന്ദ്രവും ആലപ്പുഴ പള്ളിപ്പുറം സി ആർ

എഫ് പരീക്ഷാകേന്ദ്രവും മാറ്റിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികൾ പുതിയ അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യണം ഉച്ചയ്ക്ക് ഒന്നരയോടെ പരീക്ഷാ കേന്ദ്രങ്ങളിലെ ഗേറ്റ് അടയ്ക്കും

ന്യൂഡൽഹിയിൽ തെലുങ്ക് പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി കൃഷി വിദ്യാഭ്യാസം ഗ്രാമവികസനം ആരോഗൃം തുടങ്ങിയ മേഖലകളിൽ പദ്ധതികൾ കൊണ്ടുവരാൻ ജനപ്രതിനിധികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ശ്രീ വെങ്കയ്യനായിഡു അഭിപ്രായപ്പെട്ടു

ഫോമിലേക്ക് തിരിച്ചെത്തിയ ഹെറ്റ്മെയറാണ് ബ്യാംഗ്ലൂരിന് വിജയമൊരുക്കിയത്

ഇന്നലെ വൈകിട്ട് നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് അഞ്ച് വിക്ക റ്റിന് വിജയിച്ചു

ഇന്നത്തെ മത്സരത്തിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെയും മുംബൈ ഇൻഡ്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേ ഴ്സിനെയും നേരിടും

ഈ വ്യക്തികൾ വിദേശത്ത് പോയത് സംബന്ധിച്ച വിവരങ്ങളുണ്ടെങ്കിലും ഭീകര സംഘടനകളുമായി ഇവർക്കുള്ള ബന്ധം സംബന്ധിച്ച മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് ആകാശവാണി കൊളംബോ ലേഖകനു നല്കിയ അഭിമുഖത്തിൽ ശ്രീ

ഇവരിൽ ഒട്ടേറെ പേർ ഈസ്റ്റർ ദിനത്തിലെ ആക്രമണങ്ങളിലും ശേഷിക്കുന്നവർ തുടർന്നു നടന്ന റെയ്ഡുകളിലും കൊല്ലപ്പെട്ടു

പാരിസ്ഥിതിക ആഘാതം വള്ളരികുറഞ്ഞ രീതിയിൽ ആയിരിക്കും പാലത്തിന്റെ നിർമ്മാണ്ഉമെന്ന് സതേൺ റെയിൽവേ അഡീഷണൽ ജന റൽ മാനേജർ രാഹുൽ ജെയിൻ പറഞ്ഞു രാമേശ്വരം മുതൽ ധനുഷ് കോടി വരെയുള്ള റെയിൽവേ പാതയുടെ പ്രാഥമിക ഘട്ടം പൂർത്തിയാ ക്കിയതായും സ്റ്റേഷൻ സൌകര്യങ്ങളും യാത്രാ സൌകര്യങ്ങളും ഒരു ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ശ്രീ ജെയിൻ പറ ഞ്ഞു